എസ് അധ്യക്ഷൻ കെ

സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം

രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി

നെതർലന്റിസിനെയും ബെൽജിയം ജർമ്മനിയെയും നേരിടും

അധ്യക്ഷൻ കെ ചന്ദ്രശേഖര റാവു ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഇത് രണ്ടാം തവണയാണ് ശ്രീ

ചില മന്ത്രിസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഇതോടെപ്പമുണ്ടാകും മുൻ മന്ത്രി സഭയിലെ ഒട്ടുമിക്ക അംഗ്ഗങ്ങളും് പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ്ട് സൂചിന എന്നാൽ ചില മാറ്റങ്ങൾക്ക് സൂചന നൽകി എല്ലീം മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ലി നേരത്തെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ശ്രീ പ്രന്ദ്രശേഖര റാവുവിനെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തിരുന്നു

സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കാൻ കോൺഗ്രസ് നിയമസഭ കക്ഷി യോഗം ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കി ഇന്നലെ രാത്രി ചേർന്ന യോഗത്തിൽ മുൻ മന്ത്രിയും നിയമസഭാംഗവുമായ ചരൺദാസ് മഹന്ത് ആണ് ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്

എ മാരുടെ യോഗത്തിൽ നിരീക്ഷകനായിരുന്നു ഛത്തീസ്ഗഡിൽ പാർട്ടിയുടെ ചുമതലയുള്ള എ ഐ

സി ജനറൽ സെക്രട്ടറി പി

പൂണിയ സെക്രട്ടറി ചന്ദൻ യാദവ് ഡോ അരും ഒറാം എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു

സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കും പാർട്ടി കേന്ദ്ര നിരീക്ഷകർ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ കക്ഷി അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ശ്രീ

ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം

സച്ചിൻ പൈലറ്റ് എന്നിവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്

മധ്യപ്രദേശിൽ കോൺഗ്രസ് നിയമസഭ കക്ഷി ഇന്നലെ യോഗം ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ ചുമതലപ്പെടുത്തി മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്ര നിരീക്ഷകനുമായ ശ്രി

മുതിർന്ന പാർട്ടി നേതാവും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ കമൽനാഥിനെയാണ് പ്രധാനമായും മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുന്നത് തങ്ങളുടെ മുൻഗണന പാർട്ടിയുടെ ആഭ്യന്തര സംവിധാനത്തിലൂടെ കൈമാറാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എം

എ

താമസിയാതെ ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പാർലമെന്റിന് പുറത്ത് വാർത്താലേഖകരോട് പറഞ്ഞു

എഫ് അധ്യക്ഷൻ സൊറം തങ്കയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ശനിയാഴ്ച്ച സ്ത്യപ്രതിജ്ഞ ചെയ്യും

പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി എം

എ

മേഖലയിൽ ഭികരർ ഒളിച്ചു താമസിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് നടന്ന തെരച്ചിലിനൊടുവിൽ ഭീകരർ സുരക്ഷാ സേനയ്ക്കു നേരെ വെടിവയ്ക്കുകയായിരുന്നു ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോഴും മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്

രാവിലെ സഭ സമ്മേളിച്ചയുടൻ റാഫേൽ വിമാന ഇടപാടിൽ ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുതളത്തിലിറങ്ങുകയായിരുന്നു വിഷയം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബഹളം

ഐ

എം കെ അംഗങ്ങൾ ബഹളം കൂട്ടിയതിനെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു വിഷയത്തിൽ ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് സഭാ നടപടികൾ തടസപ്പെടുന്നത് ശാന്തരാകാൻ ചെയർമാൻ എം

ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുന്നതിന് ഭീകരർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാനാവില്ലെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേന്ദ്ര മന്ത്രിമാർ എം

ഭീകരവാദം എന്ന പൊതു ശത്രുവിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു ആക്രമണത്തിൽ രക്തസാക്ഷികളായവരുടെ ധൈര്യത്തെ പ്രകീർത്തിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

ആർ

എഫ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ ഒമ്പത് പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നും സഭ സമ്മേളിച്ചയുടനെ ശബരിമല പ്രശ്നവുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു വനിതാ മതിലിനെ വർഗീയ മതിലായി ചിത്രീകരിച്ചതിൽ പ്രതിഷേധിച്ച് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും മുദ്രാവാക്യം വിളിയും ഉണ്ടായി തുടർന്ന് നിയമസഭ പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു

നമ്മുടെ നാടിന്റെ അഭിമാന മതിലായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു

ഭുവനേശ്വരിൽ കലിംഗ സ്റ്റേഡിയത്തിൽ ബെൽജിയം ജർമ്മനിയെ നേരിടും

വിശദാംശങ്ങളുമായി സുരേഷ് ബാബു

വിശദാംശങ്ങളുമായി

പി മാരാണ് തെരേസ മേയ്ക്ക് എതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്

അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെ ഇനി ഒരു വർഷം വരെ തെരേസ മേയ്ക്ക് അവിശ്വാസത്തെ നേരിടേണ്ടിവരില്ല ബ്രക്സിറ്റ് ഉടമ്പടിയിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിയമപരവും രാഷ്ട്രീയപരവുമായ പിന്തുണ ഉറപ്പാക്കുന്നതിന് ബ്രസ്സൽസ് സന്ദർശിക്കുമെന്ന് തെരേസ മേ അറിയിച്ചു

മാരുടെ ആശങ്കകൾ കൂടി പരിഗണിച്ച് കൊണ്ട് നയവുമായി മുന്നോട്ട് പോകുമെന്ന് അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാളെ മുംബൈയിൽ വച്ച് ലീ ഡ്രെയ്ൻ സിനിമാ ടെലിവിഷൻ ടൂറിസം മേഖലകളിലെ ഉന്നതരുമായി സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും ശനിയാഴ്ച ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധിതല ചർച്ചയിൽ ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും ചർച്ചചെയ്യും

മ്യാൻമാറിന്റെ പുനർനിർമ്മാണം സാമ്പത്തിക വികസന പദ്ധതികളിലും ഇന്തൃ കൈകോർക്കുമെന്ന് രാഷ്ട്രപതി വൃക്തമാക്കി